ലഭിക്കുന്ന സംഭാവനകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണമെന്ന് സുപ്രീംകോടതി

ഈ രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂക്ഷിച്ച് വയ്ക്കണമെന്നും കോടതി ഉത്തരവിട്ടു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസുമാരായ ദീപക് ഗുപ്ത സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങിയ ബഞ്ചാണ് ഉത്തരവിട്ടത് തെരഞ്ഞെടുപ്പ് ബോണ്ടിന്റെ സാധുത ചോദ്യം ചെയ്ത് ഒരു സന്നദ്ധ സംഘടന നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ്

കഴിഞ്ഞ രാത്രി ജയ്പൂരിൽ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നാല് വിക്കറ്റുകൾക്ക് പരാജയപ്പെടുത്തി